അന്താരാഷ്ട്ര വനിതാ ദിനമായ ഇന്ന് രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് നാരി ശക്തിപുരസ്ക്കാരങ്ങൾ സമ്മാനിച്ചു

സാനിറ്ററി നാപ്കിനുകൾക്കൊപ്പം മണ്ണിൽ ജീർണിച്ച് ചേരുന്ന തരം ബാഗുകൾ ഉൾപ്പെടുത്താൻ നിർമ്മാതാക്കളോട് ആവശ്യപ്പെടുമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ

പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ

വിശദാംശങ്ങളുമായി നരേന്ദ്രമോഹ്ന്റു

സ്ത്രീ ശാക്തീകരണത്തിനും പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും താഴെക്കിടയിൽ നിന്നും പോരാടി ഉയരത്തിൽ എത്തുന്ന സ്ത്രീകൾക്കും നൽകിവരുന്ന പുരസ്ക്കാരമാണ് നാരി ശക്തി പുരസ്ക്കാരം

രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തര മന്ത്രി അമിത് ഷാ എന്നിവർ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു

സമത്വത്തിനായി ഓരോരുത്തരും സ്ത്രീകളുടെ അവകാശങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ഈ വർഷ്യള്ളത്ത് അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം

ഫുഡ് ബാങ്ക് എന്ന സംരംഭം ആരംഭിച്ച സ്നേഹ മോഹൻ ഡോബ് പ്രഭാഷകയും സാമൂഹ്യ പ്രവർത്തകയുമായ ഡോ മാളവിക അയ്യർ തുടങ്ങിയവർ അവരുടെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളും വിജയിച്ച പോരാട്ടങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ അക്കൌണ്ടിലൂടെ ജനങ്ങളോട് സംവദിച്ചു സ്ത്രീകളുടെ ഈ നേട്ടങ്ങൾ ആഘോഷിക്കപ്പെടണമെന്നും അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു

പുനേയിൽ വനിതാ ശുചീകരണ പ്രവർത്തകരോട് സംവദിക്കുകയാ യിരുന്നു അദ്ദേഹം

മറ്റ് മാലിന്യങ്ങൾക്ക് ഒപ്പം നിക്ഷേപിക്കും മുമ്പ് നാപ്കിനുകൾ ഇത്തരത്തിലുളള ബാഗുകളിൽ പൊതിയുന്നത് പ്രശ്നത്തിന് പരിഹാരം കാണാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ഡോഹ്റ മേഖലയിൽ പകൽ കർഫ്യൂവിന് ഇളവ് നൽകിയിട്ടുണ്ട്

ഇന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്ത റാണ കപൂറിനെ ഉച്ചയോടെയാണ് കോടതിയിൽ ഹാജരാക്കിയത് നിരവധി കോർപ്പറേറ്റ് ഏജൻസികൾക്ക് നൽകിയ വായ്പകൾ നിഷ്ക്രീയ ആസ്തികളായി മാറിയതിനെ തുടർന്നാണ് യെസ് ബാങ്ക് പ്രതിസന്ധിയിലായത് കൂടുതൽ തെളിവുകൾക്കായി റാണാ കപൂറിന്റെ മൂന്ന് പെൺമക്കളുടെ ഡൽഹിയിലെയും മുംബൈയിലെയും വസതികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിച്ചിരുന്നു വ്യാഴാഴ്ച റിസർവ്വ് ബാങ്ക് യെസ് ബാങ്കിന്റെ മേൽ മൊറട്ടോറിയം ഏർപ്പെടുത്തിയിരുന്നു

പത്തനംതിട്ട ജില്ലയിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്

വിവരങ്ങൾ ഒളിച്ചുവയ്ക്കുന്നത് നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാണ് ഇത്തരക്കാർക്കെതിരെ നിയമനടപടി സ്വീകരി ക്കുമെന്നും പോലീസ് അറിയിച്ചു

ആറ്റുകാൽ പൊങ്കാലമാറ്റിവെയ്ക്കേണ്ട സാഹചര്യമില്ലെന്നും ഗവർണർ മാധ്യമങ്ങ ളോട് പറഞ്ഞു

ക്ഷേത്ര പരിസരത്തും നഗര വീഥികളിലും ഇന്നലെ രാത്രി മുതൽ തന്നെ പൊങ്കാല അടുപ്പുകൾ നിരന്നുകഴിഞ്ഞു

ഉച്ചക്ക് പൊങ്കാല ചടങ്ങുകൾ പൂർത്തിയായാലുടൻ മടങ്ങിപ്പോകാൻ കെ എസ് ആർ ടി

ഓസ്ട്രേലിയൻ ഓപ്പണർമാരായ ഹെയ്ലിയും ബെത്ത് മൂണിച്ചും അർദ്ധ സെഞ്ചറി നേടി

കണ്ണിന് കാഴ്ച നൽകാൻ സഹായിക്കുന്ന നേത്ര മജ്ജ തന്തുവിന് ക്ഷതം സംഭവിക്കുന്നതു കൊണ്ട് കണ്ണിനുണ്ടാകുന്ന അസുഖങ്ങളെ പൊതുവെ ഗ്ലോക്കോമ എന്ന് അറിയപ്പെടുന്നു ഇത് സമയത്ത് കണ്ടെത്തി ചികിത്സിച്ചില്ല എങ്കിൽ പൂർണമായ അന്ധതയിലേയ്ക്ക് നയിക്കും ലോകത്താക മാനമുള്ള അന്ധതയ്ക്കുള്ള രണ്ടാമത്തെ പ്രധാന കാരണ മാണ് ഗ്ലോക്കോമ

ന്യൂസ് ഡെസ്ക് ആകാശവാ്ണി